ഓസ്ട്രേലിയയുമായുള്ള ബന്ധം വിപുലപ്പെടുത്താൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് ഇന്ത്യ ഓസ്ട്രേലിയ വിർച്വൽ ഉച്ചകോടിയിൽ പങ്കെടുത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

ഡൽഹിയിലേക്ക് മട്ങിയെത്തുന്ന യാത്രക്കാർക്ക് ഏഴ് ദിവസത്തെ ക്വാറന്റൈൻ നിർബന്ധമാക്കും

സംസ്ഥാനത്ത് സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ച് ആന കൊല്ലപ്പെട്ട സംഭവത്തിൽ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി റിപ്പോർട്ട് തേടി

ഓസ്ട്രേലിയയുമായുള്ള ബന്ധം വിപുലപ്പെടുത്താൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് ശ്രീ

ഇത് ഇന്തോ പെസഫിക് മേഖലയേയും ലോകരാജ്യങ്ങളേയും സംബന്ധിച്ചിടത്തോളം നിർണ്ണായകമായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു സാങ്കേതിക രംഗത്ത് പ്രധാനമന്ത്രി നരേന്ദ്ര മോദി നേതൃസ്ഥാനം വഹിക്കുന്നതായി ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി സ്കോട്ട് ്ട്മോറിസൺ ഉച്ചകോടിയിൽ പറഞ്ഞു

കാർഷിക മേഖലയിൽ പരിവർത്തനം സൃഷ്ടിക്കുക എന്ന ഉദ്ദേശൃത്തോടെയുള്ളതാണ് നിയമഭേദഗതി

ഭേദഗതിയിലൂടെ ഭക്ഷ്യധാനൃങ്ങൾ എണ്ണക്കുരുക്കൾ ഉരുളക്കിഴങ്ങ് ഉള്ളി പയർ വർഗ്ഗങ്ങൾ തുടങ്ങിയവ അവശ്യ വസ്തു നിയമത്തിന്റെ പരിധിയിൽ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ട് രാജൃത്ത് നിക്ഷേപം ആകർഷിക്കുന്നതിനായി വിവിധ മന്ത്രാലയങ്ങളിലും വകുപ്പുകളിലും സെക്രട്ടറിമാരുടെ ഉന്നതാധികാരസമിതികളും പ്രോജക്ട് ഡെവലപ്മെന്റ് സെല്ലുകളും രൂപീകരിക്കുന്നതിനും കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നല്കി ഇതിനു പുറമേ കാർഷിക വിലസ്ഥിരത ഓർഡിനൻസിനും കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി

കൂടുതൽ വിവരങ്ങളുമായി ആമിന നജ്മ

വിമാനത്താവളങ്ങൾ റെയിൽവേ സ്റ്റേഷനുകൾ ബസ് സ്റ്റാന്റുകൾ എന്നിവിടങ്ങളിൽ നിന്നും യാത്രക്കാരുടെ വിവരങ്ങൾ സർക്കാർ എല്ലാ ദിവസവും ശേഖരിക്കുമെന്നും ഇതുപയോഗിച്ച് പരിശോധന നടത്തുമെന്നും അധികൃതർ അറിയിച്ചു

ഇവർക്ക് വിസാ ഇളവ് നൽകുന്ന കാര്യവും സർക്കാരിന്റെ പരിഗണനയിലുണ്ട്

ഇതിനുള്ള ബുക്കിംഗ് നാളെ ആരംഭിക്കും ന്യൂയോർക്ക് നെവാർക്ക് ചിക്കാഗോ വാഷിംഗ്ടൺ വാങ്കൂവർ ടൊറന്റോ എന്നിവിടങ്ങളിലാണ് എയർ ഇന്ത്യ സർവ്വീസ് നടത്തുന്നത് അമേരിക്കയിലേക്കും കാനഡയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് പ്രവേശന വൃവസ്ഥകൾ പാലിക്കുന്നതായി ഉറപ്പു വരുത്തിയ ശേഷം ടിക്കറ്റ് ബുക്ക് ചെയ്യാം

ഇവയിൽ ഏഴെണ്ണം കേരളത്തിലേയ്ക്കാണ് ആറ് വിമാനങ്ങൾ യു

ഇ യിൽ നിന്നാണ് ദുബായിൽ നിന്ന് ജയ്പൂർ ഹൈദരാബാദ് മധുര കൊച്ചി തിരുവനന്തപുരം എന്നിവിടങ്ങളിലേയ്ക്കും അബുദാബിയിൽ നിന്ന് കോഴിക്കോട്ടേയ്ക്കുമാണ് സർവ്വീസ്

സാധാരണക്കാർക്ക് ചുരുങ്ങിയ ചെലവിൽ മികച്ച ചികിത്സാ സൌകര്യങ്ങൾ ലഭ്യമാക്കുന്നതിനും ആരോഗ്യ മേഖലയിലെ അടിസ്ഥാന സൌകര്യ വികസനത്തിനും കഴിഞ്ഞ ഒരു കൊല്ലക്കാലം കൊണ്ട് വലിയ മുന്നേറ്റങ്ങൾ സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുണ്ട്

ആരോഗ്യ പ്രവർത്തകർക്കും രോഗികൾക്കും മാർഗ്ഗനിർദ്ദേശങ്ങൾ ബാധകമായിരിക്കും വിശദാംശങ്ങളുമായി ആമിന നജ്മ

മാസ്ക് ധരിച്ച് കൈവൃത്തിയാക്കി സാമൂഹ്യുഅകലം പാലിച്ചാണ് രോഗികളും കൂടെയെത്തുന്നവരും ഒപ്പിയിലേക്ക് പ്രവേശിക്കേണ്ടത് കഴിവതും ഫോണിലൂടെ രോഗികളെ ക്കേട്ടശേഷം പരിശോധന ആവശ്യമെങ്കിൽ മാത്രം നേരിട്ടെത്തി ചികിത്സ തേടുന്ന രീതിയും അവലംബിക്കാവുന്നതാണ് ഒഴിച്ചുകൂടാനാകാത്ത സാഹചരൃമാണെങ്കിൽ മാത്രം പ്രത്യേകമൊരുക്കുന്ന ഓപ്പറേഷൻ തീയററുകളിൽവെച്ച് മാത്രമേ കോവിഡ് പോസിറ്റീവായ രോഗികളുടെ ശസ്ത്രക്രിയകൾ ചെയ്യാൻ പാടുള്ളൂവെന്നും കേന്ദ്രം നിർദേശിക്കുന്നു

ഇവരുടെ പരിശോധനാഫലം നെഗറ്റീപ്പ് ആണെന്നുറപ്പിച്ചശേഷം മാത്രം ഇഎൻടി വാർഡിലേക്ക് മാറ്റാവുന്നതാണെന്നും മാർഗനിർദേശത്തിൽപ്പറയുന്നു

അമ്പത് പേർക്ക് പരിക്കേറ്റു

പരിക്കേറ്റവരിൽ പലരുടെയും നില ഗുരുതരമാണ്

യുഎസ് വിമാനങ്ങൾ ചൈനയിലേക്ക് പ്രവേശിപ്പിക്കാതിരുന്ന നടപടിയ്ക്കുള്ള മറുപടിയാണിതെന്ന് അമേരിക്കൻ പ്രസിഡന്റിന്റെ ഓഫീസ് വ്യക്തമാക്കി ഡാണാൾഡ് ട്രംപിന്റെ അന്തിമാനുമതി ലഭിച്ചാൽ ഉത്തരവ് പുറത്തിറങ്ങും